ആരാധനാ കേന്ദ്രങ്ങളിലെയും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഏഴംഗ ബഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു

പതിനൊന്നാമത് ബ്രിക്സ് ഉച്ചകോടിയെ ബ്രസീലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

ജെ പി പ്രഖ്യാപിച്ചു

അടിയന്തിര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്

യുവതീപ്രവേശനം അനുവദിച്ച പ്പിധ്പിയ്ക്കെതിരെ നൽകിയിരുന്ന പുനപരിശോധനാ ഹർജികൾ ഭൂര്യപ്പക്ഷ് വിധി പ്രകാരമാണ് വിശാല ബഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട്ത്

ശബരിമലയിൽ മാത്രമല്ല മറ്റ് മൽങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുളള ഇടങ്ങൾ ഉണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞു ശബരിമല യുവതീപ്രവേഴ്സ്നം മുസ്തീംപളളിയിലെ സ്ത്രീപ്രവേശനം ദാവൂദിബോറ സമുദായത്തിലെ പെൺകുട്ടികളെ ജനനേന്ദ്രീയ ഛേദനത്തിന് വിധേയരാക്കുക എന്നീ വിഷയങ്ങൾ വിശാലബഞ്ച് പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് രഞ്ജൻഗൊഗോയ് അദ്ദേഹത്തിനുവേണ്ടിയും ജസ്റ്റിസുമാരായ എ എം ഖാൻ വിൽക്കറിനും ഇന്ദുമൽഹോത്രയ്ക്കും വേണ്ടിയും വിധിന്യായം വായിച്ചു

ഹർജികളിൽ കഴമ്പില്ലെന്ന പരാമർശത്തോടെയാണ് സുപ്രീംകോടതി ഇവ തളളിയത് റഫേൽ ഇടപാടിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യവും സൂപ്രീംകോടതി നിരസിച്ചു

മൂന്നംഗ ബഞ്ചിനുവേണ്ടി ജസ്റ്റിസ് എസ്

പുനപരിശോധന ഹർജികൾ തളളിയതിനെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്വാഗതം ചെയ്തു

ഇതിനുശേഷം സമ്പൂർണ്ണ സമ്മേളനം നടക്കും

ബ്രിക്സ് നവീകരണ ശൃംഖല ഭാവി ശൃംഖലയ്ക്കായുളള ബ്രിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ത്രീകളുടെ വ്യാപാര സഖ്യം എന്നിവ ഈ വർഷം നിലവിൽ വരും ബ്രിക്സ് രാജ്യങ്ങളുടെ ശാക്തീകരണത്തിന് ഇവ നാഴികക്കല്ലാകുമെന്നാണ് പ്രതീക്ഷ

വ്യവസായം നടത്താനുളള സൌകര്യം എന്നതാണ് ഇത്തവണത്തെ വിഷയം കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ പുരോഗതിയുടെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു

ആസ്ട്രേലിയ ഇറാൻ യു കെ വിയറ്റ്നാം ബഹറിൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ചൈന ഈജിപ്ത് ഹോങ്കോങ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ ഇത്തവണ രാജ്യാന്തര വ്യാപാര മേളയിൽ പള്ക്കെട്ടുക്കുന്നുണ്ട്

ഇത്തവൺ പങ്കാളിത്ത രാജ്യമെന്ന പദവി അഫ്ഗാനിസ്ഥാനാണ് നൽകിയിട്ടുളളത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഹരിയാന ഗവർണർ എസ്

ആറ് മന്ത്രിമാർക്ക് കാബിനറ്റ് പദവിയും നാല് പേർക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവുമാണ് അടുത്തിടെ നടന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ ബി ജെ

ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് ആറ് സീറ്റ് കുറവുണ്ടായിരുന്നു

ജെ

ഇത്തരം വന ഉത്പന്ന്ങൾ ഓൺലൈൻ വിപണനം നടത്താൻ വേണ്ട്ടീയുള്ള നടപടികൾക്കായി ഒരു സമിതിക്ക് രൂപം നൽകും ഷ്ട്രില്ലോംഗിൽ സെക്രട്ടറിയേറ്റിൽ നടന്ന വിവിധ പദ്ധതികളുടെ ക്യുന്നരവലോകന യോഗത്തിൽ സംബന്ധിക്കവെയാണ് മന്ത്രി ഇക്കൂരൃം അറിയിച്ചത്

യുമായ സുനിൽ ഗോധ്വാനി എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു റെലിഗെയർ ഫിൻവെസ്റ്റ് ലിമിറ്റഡിന്റെ ഫണ്ടുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് കേസ്

ഇതേ കേസിൽ ഡൽഹി പോലീസ് കേസ് ഫയൽ ചെയ്തതോടെയാണ് ഇവർ തിഹാർ ജയിലിൽ തടവിലായത്

സി യിലെ പ്രതിസന്ധി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തരപ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

വിൻസെന്റ് ആണ് അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകിയത്

എസ് ആർ ടി സി സിയിലെ പ്രതിസന്ധി സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്തതാണെന്ന് ഗതാഗതമന്ത്രി എ

ഓരോ വർഷം ആയിരം കോടി രൂപ ഗവൺമെന്റ് കെ എസ് ആർ ടി

കെ എസ് ആർ ടി സി യിലെ ജീവനക്കാരുടെ അനുപാതം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്നതാണ് ഇത് കുറച്ചുകൊു വരാൻ ശ്രമം നടത്തുന്നുണ്ട് രണ്ട് സൂപ്രധാന കോടതി വിധികളിലൂടെ താഴ്ൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു ഇതടക്കം സ്കൃഷ്ട്രിച്ച പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു

ഇന്ത്യയ്ക്ക് വേണ്ടി മൊഹമ്മദ് ഷമി ദ വിക്കറ്റും ഇഷാന്ത് ശർമ്മ ആർ

കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

അയോധൃയിലെ ഭൂമിതർക്ക കേസിൽ പാകിസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഷൌക്കത്ത് മഹ്മൂദ് നടുക്കം രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം മതസ്വാതന്ത്ര്യം പോലുളള യുനസ്കോയുടെ മൂല്യങ്ങൾക്കെതിരെയാണ് പാകിസ്ഥാന്റെ പ്രതികരണം ഇത്തരം അനീതി അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു നിയമാനുസൃതമായാണ് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചതെന്ന് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു ഇത് പാകിസ്ഥാന് അന്യമായിരിക്കും

പുതുതായി രൂപീകൃതമായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗങ്ങളായിരിക്കുമെന്ന് ഇന്തൃ വൃക്തമാക്കി ന്യൂസ്ഡെസ്ക് ആകാശവാണി

ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ എത്തിയ കുട്ടികളുമായി ആശയവിനിമയം നടത്തി

ഉപരാഷ്ട്രപതി എം

ഉത്തർപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക

ജെ പിയിൽ ചേർന്നു

ജെ